മൂന്ന് മുന്നണികളും ദേശീയ നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണം കൊഴുപ്പിക്കുന്നു

ത അന്താരാഷ്ട്ര സൌഹ്യദ ഫുട്ബോൾ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും

വാർത്തകൾ വിശദമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോടെ സംസ്ഥാനത്ത് പോരാട്ടം കനത്തു

ദേശീയ നേതാക്കളെ കളത്തിലിറക്കി കഴിയുന്നത്ര വോട്ടുകൾ പക്ഷത്താക്കാൻ ശ്രമത്തിലാണ് മുന്നണികൾ എൻഡിഎക്ക് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഇന്നലെ എറണാകുളം കൊല്ലം കോട്ടയം പാലക്കാട് ജില്ലകളിൽ പ്രചാരണം നടത്തി പാർട്ടി അധ്യക്ഷൻ ജെ

നദ്ദ നാളെ വൈകീട്ട് കണ്ണൂരിലെത്തും മറ്റന്നാൾ രാവിലെ ധർമ്മടം മണ്ഡലത്തിൽ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസ്ഥാനത്ത് പ്രചാരണം തുടരുകയാണ് ഇന്ന് കോട്ടയം ജില്ലയിൽ എത്തുന്ന അദ്ദേഹം കടുത്തുരുത്തി കോട്ടയം കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും ആദ്യ ഘട്ട പര്യടനം പൂർത്തിയാക്കി തിരിച്ചു പോയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ പട്ടാമ്പി പൊന്നാനി പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ പര്യടനത്തിനെത്തും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

മുന്നണികളുടെ സംസ്ഥാന നേതാക്കളും ജില്ലകളിൽ പര്യടന തിരക്കിലാണ് രുര എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം മലമ്പുഴ മണ്ഡലത്തിലെ കഞ്ചിക്കോട് നടന്ന റോഡ് ഷോയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പങ്കെടുത്തു മലമ്പുഴ പാലക്കാട് മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും അമിത്ഷായോടൊപ്പം റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു രും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നീക്കമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി ജനങ്ങളെ മുന്നിൽ നിർത്തി ഇതിനെ പ്രതിരോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു തിരൂരിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രുര സംസ്ഥാനത്ത് ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ യുഡിഎഫ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല

ഇതിനായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് ഇന്ന് പരിശോധന പൂർത്തിയാക്കണമെന്ന് ജില്ലാ കലക്ടർമാർക്ക് അദ്ദേഹം നിർദേശം നൽകിയിട്ടുണ്ട് രുര കണ്ണൂർ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ഇരട്ട വോട്ട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ടി

തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും റിട്ടേണിംഗ് ഓഫീസർമാരുടെയും സാന്നിധ്യത്തിൽ നടന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അപേക്ഷിച്ചവരിൽ അർഹരായ വോട്ടർമാരെ മുൻകൂട്ടി അറിയിച്ച ശേഷം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിർദിഷ്ട മേൽവിലാസത്തിൽ നേരിട്ടെത്തും മൈക്രോ ഒബ്സർവർ രണ്ട് പോളിംഗ് ഓഫിസർമാർ പൊലീസ് ഉദ്യോഗസ്ഥൻ വീഡിയോഗ്രാഫർ ഡ്രൈവർ എന്നിവരടങ്ങുന്ന സംഘമാണ് വീടുകളിലെത്തുക

സ്ഥാനാർഥിക്കോ സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ലെവൽ ഏജന്റ് ഉൾപ്പെടെ അംഗീകൃത പ്രതിനിധികൾക്കോ വീടിന് പുറത്തുനിന്ന് വോട്ടിംഗ് പ്രക്രിയ നിരിക്ഷിക്കാം തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷം വോട്ടിംഗ് രീതി സമ്മതിദായകന് വിശദീകരിച്ചു നൽകും

ഈ പ്രക്രിയ രഹസ്യസ്വഭാവം സൂക്ഷിച്ച് വീഡിയോയിൽ പകർത്തും

ഓരോ ദിവസവും ശേഖരിക്കുന്ന തപാൽ വോട്ടുകളുടെ എണ്ണം ജില്ലാ കലക്ടർമാർ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും രുര നിയമസഭാ തെരഞ്ഞെടുപ്പും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടക്കുന്ന ഏപ്രിൽ ആറിന് സംസ്ഥാനത്തെ ഗവൺമെന്റ് ഓഫീസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചു

സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസം ശമ്പളത്തോടു കൂടിയ അവധി ലഭ്യമാക്കാൻ ലേബർ കമ്മീഷണർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുഭരണ വകുപ്പ് ഉത്തരവിൽ വ്യക്തമാക്കി

രുഭ തിരുവനന്തപുരം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കു നിയോഗിക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ നിർബന്ധമായും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇവർക്കായി വാക്സിനേഷൻ സൌകര്യം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ രാവിലെ പത്തുമുതൽ വൈകീട്ടു മൂന്നു വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്

മൂന്ന് പ്രധാന മുന്നണികളുടെയും ദേശീയ നേതാക്കളാണ് പ്രചാരണരംഗത്ത് സജീവമാകുന്നത്

കോവിഷീൽഡ് വാക്സിന്റെ രണ്ടു ഡോസുകൾ തമ്മിലെ ഇടവേള നാല്മുതൽ എട്ടുവരെ ആഴ്ചയായാണ് പുനക്രമീകരിച്ചത്

രും വയനാട്ടിൽ കോവിഡ് കേസുകൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണ മാർഗങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

പ്രായമായവരിലും മറ്റ് രോഗങ്ങൾ ഉള്ളവരിലും ഇപ്പോഴും കോവിഡ് മാരകമാകുന്നുണ്ടെന്നും രോഗ ലക്ഷണങ്ങൾ ഉള്ളവർ ടെസ്റ്റ് ചെയ്തു കോവിഡ് ആണോ എന്ന് സ്ഥിരീകരിക്കുകയും മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്നും ഡിഎംഒ പറഞ്ഞു രും ദുബായിൽ വൈകീട്ട് നടക്കുന്ന അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ പോരാട്ടത്തിൽ ഇന്ത്യ ഒമാനെ നേരിടും

തിങ്കളാഴ്ച്ച നടക്കുന്ന രണ്ടാം മത്സരത്തിൽ യുഎഇ യാണ് ഇന്ത്യയുടെ എതിരാളി

രുര ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പുതിയ കപ്പൽ വജ്ര ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു

ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററും നാല് അതിവേഗ ബോട്ടുകൾ ഉൾപ്പെടെ വഹിക്കാൻ കപ്പലിന് ശേഷിയുണ്ട് കടലിൽ ഇന്ധന ചോർച്ച മൂലമുണ്ടാകുന്ന മലിനീകരണം നീക്കുന്നതിനായി ഉപകരണവും കപ്പലിൽ ഘടിപ്പിച്ചിട്ടുണ്ട് രേര ഇന്ധന വിലയിൽ ഇന്നും കുറവ്